വോട്ടെടുപ്പ് ഇന്നുണ്ടായേക്കില്ലെന്ന് സ്പീക്കർ ഗവർണറുടെ നിർദേശം അംഗീകരിക്കില്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ

തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളെജിൽ അഖിലിനെ കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു

ൾ ൽ ൾ കർണാടക നിയമസഭയിൽ മുഖ്യമന്ത്രി കുമാരസ്വാമി അവത രിപ്പിച്ച വിശ്വാസ പ്രമേയത്തിൽ ചർച്ച പുനരാരംഭിച്ചു

ഗവർണറുടെ നടപടിക്കെതിരെ മുഖൃമന്ത്രി കുമാ രസ്വാമി സുപ്രീംകോടതിയെ സമീപിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട്

വിശ്വാസ പ്രമേയ ചർച്ച ്മാത്രമാണ് ഇന്ന് നടക്കുകയെന്ന് അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു ആരോപ ണങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും പക്ഷം പിടിക്കാതെ തീരുമാന മെടുക്കാൻ കരുത്തുണ്ടെന്നും സ്പീക്കർ വ്യക്തമാക്കി കർണാടകയിൽ ഇന്നുച്ചക്ക് ഒന്നരയ്ക്കു മുമ്പ് വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന ഗവർണറുടെ നിർദേശം അംഗീകരി ക്കില്ലെന്ന് സംസ്ഥനത്തിന്റെ ചുമതല വഹിക്കുന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കി നിയമസഭയ്ക്ക് നിർദേശം നൽകാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും അദ്ദേഹം ബംഗളൂരുവിൽ പറഞ്ഞു അധി കാരമില്ലാത്ത കാര്യങ്ങളിലാണ് ഗവർണർ ഇടപെടുന്നതെന്നും സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ നടത്തുന്ന ഗൂഢനീക്കമാണ് ഇതിന് പിന്നിലെന്നും വേണുഗോപാൽ ആരോ പിച്ചു നിയമപരമായി ഇത് നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു ഗവർണർ ബി ജെ പി ഏജന്റായി പ്രവർത്തിക്കുകയാണെന്നും രാജ്ഭവൻ ബി ജെ പി ഓഫീസായെന്നും അദ്ദേഹം കുറ്റപ്പെടു ത്തി

ഇക്കാര്യത്തിൽ വൃക്തത വന്ന ശേഷമെ വിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടത്തേണ്ട തുള്ളൂവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

കർണാടകയിലെ രാഷ്ട്രീയ പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് കേരള സർവകലാശാലയിലെ പ്രവേശനത്തിനും പരീക്ഷ യിലും പി എസ് സി ജോലികളിലും ഗുരുതരമായ കുംഭകോണവും അഴിമതിയും നടക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നി ത്തല കുറ്റപ്പെടുത്തി സർവകലാശാലയുടെ കാര്യത്തിൽ ചാൻസ ലർ എന്ന നിലയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇടപെട ണമെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് നേതാക്കളൊടൊപ്പം രാജ്ഭവനിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവത്തെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുക യായിരുന്നു അദ്ദേഹം പ്രശ്നങ്ങൾ ഗൌരവമായി വീക്ഷിക്കുന്ന തായി ഗവർണർ അറിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു സംഭവ ത്തിൽ സിബിഐ അന്വേഷണം വേണം

ആരോപണങ്ങൾ അന്വേഷിക്കാൻ സിൻഡിക്കേറ്റ് നിയോഗിച്ച ഉപസമിതി കേസ് അട്ടിമറിക്കാനും എസ് എഫ് ഐയെ സഹാ യിക്കാനുമാണെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി സിപിഐ പ്രതി നിധിയെ പോലും ഉൾപ്പെടുത്താത്ത ഉപസമിതിയെ ഒരു കാരണ വശാലും അംഗീകരിക്കില്ലെന്ന് അദ്ദേഹം വൃക്തമാക്കി ഉന്നത വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞ് കിടക്കുകയാണെന്നും ഗവ കോളെജുകളിൽ നടക്കുന്ന ഗുണ്ടായിസവും അക്രമവും നേരി ടാൻ നടപടിയില്ലെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി പ്രശ്നങ്ങളിൽ ഗൌരവമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് രണ്ടാം തവണയാണ് പ്രതിപക്ഷം ഗവർണറെ കാണുന്നത്

യുണി വേഴ്സിറ്റി കോളജിലെ അക്രമസംഭവങ്ങളെ തുടർന്നുണ്ടായ സ്ഥിതി യോഗം ചർച്ച ചെയ്തേക്കും പിഎസ്സിയുടെ സുതാ ര്യതയെക്കുറിച്ചുയർന്ന ആരോപണങ്ങളും ചർച്ചക്കു വരുമെന്നാണ് സൂചന തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളെജിൽ അഖിലിനെ കുത്താനുപയോഗിച്ച കത്തി കണ്ടെടുത്തു കോളെജ് കൃാമ്പസിലെ മാലിന്യ കൂമ്പാരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കത്തി പ്രതി കളായ ശിവരഞ്ജിത്തിനെയും നസീമിനെയും തെളിവെടുപ്പി നായി കൊണ്ടു വന്നപ്പോൾ ശിവരഞ്ജിത്താണ് കത്തി പുറത്തെ ടുത്തത് തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതികളെ കന്റോൺമെന്റ് പൊലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടു പോയി

ഒന്നു മുതൽ പ്തസ്ടു വരെയുള്ള എല്ലാ സ്കൂളുകളും നാല് മാസത്തിനകം ഹൈടെക്കാക്കി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് കുണ്ടുപറമ്പ് ഗവ ഹയർ സെക്കന്ററി സ്കൂൾ പുതിയകെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നിലവിൽ എട്ടാം ക്ലാസു മുതൽ പ്ലസ്ടു വരെ ഹൈടെക്കായി കഴിഞ്ഞു

ലബോറട്ടറികൾ മുഴുവനും ഡിജിറ്റലാക്കി മാറ്റും പണ്ടത്തെ വിദ്യാഭ്യാസ രീതി വിവരശേഖരണം മാത്രമായിരുന്നു

പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ഭൌതിക സൌകര്യങ്ങളി ലുണ്ടായ മാറ്റം വിദ്യാഭ്യാസരംഗത്ത് ഗുണപരമായ മാറ്റം ഉണ്ടാക്കിയതായി മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കോഴിക്കോട് താമരശ്ശേരിയിൽ കോരങ്ങാട് ഗവ എൽ പി സ്കൂളിന്റെ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കു കയായിരുന്നു മന്ത്രി ഈമാറ്റം ഉന്നത വിദ്യാഭ്യാസരംഗത്തേക്കും വ്യാപിക്കുമെന്നാണ് ഗവൺമെന്റിന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം അറിയിച്ചു ഇടത്തരം ചെറുകിട തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് ചരക്കു നീക്കം സജീവമാക്കുന്നതിന്റെ ഭാഗമായി ബേപ്പൂർ തുറമുഖത്ത് കൂടുതൽ കപ്പലുകളെത്തും

മുംബൈ ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നാണ് കപ്പലുകളെത്തുക കൊച്ചി കൊല്ലം ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളെ ബന്ധിപ്പി ച്ചാണ് വിപുലമായ സർവീസിന് തയ്യാറെടുക്കുന്നത്

സിപിഐ നേതൃയോഗങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭി ക്കും ആരോഗൃ കാരണങ്ങളാൽ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയാൻ എസ് സുധാകർ റെഡ്ഡി സന്നദ്ധത അറിയിച്ച സാഹചര്യത്തിലാണ് നേതൃയോഗം ചേരുന്നത് പാർട്ടി സെക്രട്ടറി ഡി രാജ പുതിയ ജനറൽ സെക്രട്ടറി ആയേക്കുമെന്നാണ് റിപ്പോർട്ട് ഇന്നലെ പാർട്ടി കേന്ദ്ര സെക്രട്ടറിയേറ്റ് യോഗം ചേർന്നി രുന്നു ഇന്ന് ദേശീയ നിർവാഹക സമിതിയും നാളെ മറ്റന്നാളും ദേശീയ കൌൺസിലും യോഗം ചേരും

കാമ്പ സ്സുകളിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടാവണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു ഇത്തരത്തിൽ പ്രവർത്തന സ്വാതന്ത്ര്യമില്ലായ്മയാണ് യൂണിവേ ഴ്സിറ്റി കോളെജിലെയും എം ജി കോളെജിലെയും പ്രശ്നമെന്നും കാനം കുറ്റപ്പെടുത്തി റയിൽവെയിലെ ഏറ്റവും വലിയ റിക്രൂട്ട്മെന്റിന് ഇന്ന് തുട ക്കം

പരിഗണിക്കുകയാണെന്ന് ഔദ്യോഗിക കേന്ദ്ര ങ്ങൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു ചൊവ്വാഴ്ചത്തെ ബി ജെ പി പാർലമെന്ററി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാക്കളുമായി ആലോചിച്ചു വരികയാണെന്നും ഡൽഹി റിപ്പോർട്ടുകൾ പറയു ന്നു സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി പലയിടത്തും കനത്ത മഴയാണ് ലഭിക്കുന്നത് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങി കനത്ത മഴ കണക്കിലെടുത്ത് കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നാളെ ഇടുക്കി ജില്ലയിലും മറ്റന്നാൾ കണ്ണൂർ ജില്ലയിലും റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട് ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടുണ്ട് നാളെ എറണാകുളം ജില്ലയിലും മറ്റന്നാൾ ഇടുക്കി എറണാകുളം ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴി ക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്

കോഴി ക്കോട് ബസ്സ്റ്റാന്റുൾപ്പെടെ പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു അതേസമയം കാര്യമായ ആനിഷ്ടസംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല കണ്ണൂർ ജില്ലയിൽ മഴ ശക്ത്മായി ജലാശയങ്ങൾ നിറഞ്ഞു മലയോരത്തും ശക്തമായ മഴയാണ് പെയ്യുന്നത് ഉരുൾ പൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി കൊടുങ്ങല്ലൂരിൽ കടൽ പ്രക്ഷുബ്ധമായി

സി കനാലിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഉടൻ തുറക്കും

നാല് ഷട്ടറുകൾ ഒരു മീറ്റർ വീതം ഉയർത്തുന്നതിനാൽ കനോലി കനാലിൽ മീൻ പിടിക്കാൻ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദേശിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ മഴ ശക്തമായി തുടരുകയാണ് ഗ്രാമീണ റോഡുകളോടു ചേർന്ന് പല ഇടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി വാഗമൺ ചെക്ക് പോസ്റ്റുൾപ്പെടെ പലയിടങ്ങളിലും മണ്ണിടിച്ചിലു ണ്ടായി ഉടുമ്പൻചോലക്കു സമീപവും നെടുങ്കണ്ടം പുളിയൻമല റോഡിൽ എസ്റ്റേറ്റ് പാമ്പാടുംപാറയ്ക്ക് സമീപവും മരം മുറിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു

കനത്ത മഴയെ തുടർന്ന് ഇടുക്കിയിലെ പാംപ്ത ഡാമിന്റെ ഷട്ടർ തുറന്നു കല്ലാർകുട്ടി ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തിയാർജ്ജിച്ചു കോഴിക്കോട് ചാലപ്പുറം ഗവ

സ്കൂളിലെ വയറിംഗ് സംവിധാനങ്ങളിൽ നിന്നാണ് ഷോക്കുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് കെ എസ് ഇ ബി അധികൃതർ പറഞ്ഞു വിദ്യാർത്ഥിനി ആശുപത്രിയിൽ ചികിത്സ തേടി കെട്ടിടുനിർമ്മാണ ചട്ടം സംബന്ധിച്ച് കൈപുസ്തകം തയ്യാറാക്കി വിതരണം ചെയ്യുമെന്ന് മന്ത്രി എ

കെട്ടിട നിർമ്മാണ അനുമതി ഉപയോഗാനുമതി ഇവ അകാരണമായി വൈകുന്ന പരാതികൾ തീർപ്പാക്കാനായി കൊല്ലം കോർപ്പറേഷൻ സംഘടിപ്പിച്ച ഫയൽ അദാലത്തിൽ അദ്ധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം അനുമതി ലഭിക്കുന്ന പ്ലാൻ പ്രകാരം മാത്രം നിർമ്മാണം പൂർത്തിയാക്കു കയെന്നത് പ്രധാന മാണെന്ന് മന്ത്രി പറഞ്ഞു സ്കൂളുകളിൽ ആരംഭിക്കുന്ന സൈക്കിൾ ബ്രിഗേഡ് പദ്ധതി യുടെ ഭാഗമായ സൈക്കിൾ കാർണിവൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉച്ച കഴിഞ്ഞ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും

ജില്ലാ വിദ്യാ ഭ്യാസ വകുപ്പ് കേരളാ മാരി ടൈം ബോർഡ് ഹയർസെക്കണ്ടറി വിഭാഗം എൻ എസ് എസ് തുടങ്ങിവയുടെ സഹകരണത്തോടെ യാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സൈക്കിൾ സ്മൈൽ ചാരിറ്റി പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും ഈ വർഷത്തെ കരിപ്പൂർ ഹജ്ജ് കൃാമ്പ് സമാപന സംഗമം ഇന്ന് നടക്കും വൈകീട്ട് ഹജ്ജ് ഹൌസിൽ മന്ത്രി ഡോ

നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹജ്ജ് തീർത്ഥാ ടകരുടെ യാത്ര ബുധനാഴ്ച പൂർത്തിയായിരുന്നു

ഹജ്ജ് സർവീ സിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാനത്തു നിന്നും രണ്ട് എമ്പാർക്കേഷൻ പോയിന്റുകളിൽ നിന്ന് ഹാജിമാർ പോയത് അതേസമയം രണ്ട് എമ്പാർക്കേഷൻ പോയിന്റുകളിൽ നിന്ന് പുറപ്പെടുന്നത് പ്രയാസമുണ്ടാക്കിയതായി സംസ്ഥാന ഹജ്ജ് കമ്മറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി കരിപ്പൂരിൽ പറഞ്ഞു അടുത്ത തവണ രണ്ട് ഘട്ടങ്ങളിലായി ക്യാമ്പ് നടത്തണമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ഓഫീസിൽ നിന്നും അദ്ദേഹം അറി യിച്ചു